പാകിസ്ഥാനെ കുറ്റപ്പെടുത്തി ഇന്തൃ

കേന്ദ്ര ആഭ്യന്ത്രമന്ത്രിക്യാജ്നാഥ് സിംഗ് ഇന്ന് ശ്രീനഗർ സന്ദർശിക്കും

ചാമ്പ്യൻഷിപ്പിൽ പി വി സിന്ധു സെമിയിൽ

നിരവധി പേർക്ക് പരിക്കേറ്റു

വോയ്സ് സൈനിക പരിശീലനത്തിനു ശേഷം ജമ്മു ശ്രീനഗർ ദേശീയ പാതയിലൂടെ മടങ്ങുകയായിരുന്ന വാഹനവ്യൂഹത്തിന് നേരെ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച കാർ ഓടിച്ചു കയറ്റുകയായിരുന്നു സ്ഫോടനത്തിനുശേഷം ഭീകരർ വാഹനവ്യൂഹത്തിനു നേരെ വെടിയുതിർക്കുകയും ചെയ്തു

എഫ് ഡയറക്ടർ ജനറൽ ആർ

ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഭീകര സംഘടനയായി ഉജ്ജയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തു രാഷ്ട്രപതി

വീര്മൃത്യു വരിച്ച ജവാൻമാരുടെ കുടുംബ ത്തോടൊപ്പമാണ് തന്റെ പ്രമ്നസ്സെന്നും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതായും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ട്വീറ്റ് ചെയ്തു

നികൃഷ്ടമായ ആക്രമണമായിരുന്നു നടന്നതെന്നും ക്രൂരമായ നീക്കത്തെ ശക്തമായി അപലപിക്കുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി രാജ് നാഥ് സിങ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത്ത് ഡോവൽ തുടങ്ങി മറ്റ് സുരക്ഷ ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച നടത്തിയതായും ശ്രീ

കേന്ദ്രമന്ത്രി രാജ് നാഥ് സിങ് ജമ്മുകശ്മീർ ഗവർണർ ആഭ്യന്തര സെക്രട്ടറി സി

കേന്ദ്രമന്ത്രി രാജ്യ വർദ്ധൻ റാത്തോഡ് ബിജെ പി അദ്ധ്യക്ഷൻ അമിതി ഷാ കോൺഗ്രസ് അദ്ധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്നിവരും ആക്രമണത്തെ അപലപിച്ചു

ഭീകരരെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ നിർത്തണമെന്നും പാകിസ്ഥാൻ മണ്ണിൽ നിലകൊള്ളുന്ന ഭീകര ഉപകരണങ്ങൾ നശിപ്പിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു യു എൻ സുരക്ഷ കൌൺസിൽ ഉപാധിയനുസരിച്ച് ജയ്ഷെ ഇ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ പ്രഖ്യാപിത ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൽ പിന്തുണയ്ക്ക ണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ലോകരാജൃങ്ങളോട് ആവശൃപ്പെട്ടു മസൂദ് അസറിന് പാകിസ്ഥാൻ പൂർണ സ്വാതന്ത്രൃം നൽകിയിരിക്കു ന്നതായും ഇന്ത്യയുൾപ്പെടെ എവിടെയും ശിക്ഷാഭയമില്ലാത്ത സംഘടന ആക്രമണം നടത്തുന്നതായും ഇന്ത്യ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളെ നിരോധിക്കണ മെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു രാജ്യ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ ഇന്ത്യ സ്വീകരിക്കുമെന്നും ദ്വീ ആക്രമണം ഭീരുതവും പൈശാചികവും നികൃഷ്ടവുമാണെന്നുക്ക് പ്പിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി

ഭീകര പ്രവർത്തനത്തെ നേരിടാൻ വിവിധ രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചു വിശദാംശങ്ങളുമായി സുരേഷ് വോയ്സ് കശ്മീരിൽ സേനാവ്യൂഹത്തെ ഭീകരർ ആക്രമിച്ചത് അത്യന്തം ഞെട്ടലോടെയാണ് ലോകം ശ്രവിച്ചത് അമേരിക്ക റഷ്യ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഭീകരാക്രമണത്തെ അപലപിച്ചു ഭീകര പ്രവ ർത്തനം നേരിടാൻ ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് ഈ രാജ്യങ്ങൾ അറിയിച്ചു

അമേരിക്ക ഇന്ത്യക്കൊപ്പം നിൽക്കുന്നുവെന്ന് യു

ഫ്രാൻസ് ജർമനി ഓസ്ട്രേലിയ ടർക്കി കാനഡ ചെക്ക് റിപ്പബ്ലിക്ക് തുടങ്ങിയ രാജ്യങ്ങൾ ഭീകരാക്രമണത്തെ അപലപിച്ചു

നേപ്പാൾ ബംഗ്ലാദേശ് ഭൂട്ടാൻ ശ്രീലങ്ക മാലദ്വീപ് എന്നീ രാജൃങ്ങളും ദുഃഖവും പ്രതിഷേധവും അറിയിച്ചു നേപ്പാൾ പ്രധാനമന്ത്രി കെ

ഭീകരരെ നേരിടാൻ ഒരുക്കമാണെന്ന് യുഎജ്യുക അറിയിച്ചിട്ടുണ്ട്

സുരക്ഷാ സ്ഥിതിഗതികൾ മന്ത്രി നേരിട്ട് വിലയിരുത്തും മുതിർന്ന സുരക്ഷാ പൊലീസ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും

രാജ്യത്ത് ആക്രമണങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലോ നിയമങ്ങൾ ക്കെതിരായോ രാജ്യ താത്പര്യങ്ങൾക്കെതിരായോ രാജ്യത്തിന്റെ ഏകീകരണത്തിനെതിരായോ ഉള്ള വാർത്തകൾ പ്രക്ഷേപണം ചെയ്യരുതെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു

ഗുണഭോക്താക്കൾക്ക് തുല്യ മൊബൈൽ ഫോൺ ക്ബ്രാങ്ക് അക്കൌണ്ട് ആധാർ എന്നിവ നിർബന്ധമാണ്

ഐ സി ഇ

ഐ സി ലേബർ ഓഫീസുകൾ തുടങ്ങി സ്ഥാപനങ്ങളോട് പദ്ധതിയുടെ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകാൻ തൊഴിൽ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്

ഇതിലൂടെ കരിമ്പു കർഷകർക്ക് യഥാസമയം പണം നൽകാൻ പഞ്ചസാര മിൽ ഉടമകൾക്ക് സാധിക്കു മെന്നും അദ്ദേഹം പറഞ്ഞു

ന്യൂഡൽഹിയിൽ നിന്നും കാൺപൂർ വഴി വാരണാസിയിലേക്കാണ് ട്രെയിൻ സർപ്പീസ് നടത്തുന്നത് തിങ്കൾ വ്യാഴം ഒഴികെയുള്ള ദിവസങ്ങളിൽ സർവ്വീസ് നടത്തുന്ന ഈ ക്ട്രടയിൻ എട്ടു മണിക്കൂറിൽ ന്യൂഡൽഹിയിൽ നിന്ന് വാരാണാസിയിൽ ഏത്തും

ആഭ്യന്തര ഭരണ പ്രതിസന്ധി നേരിടുന്ന വെനസേലൻ ് പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയ്ക്ക് കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടെന്നും വെനസേലൻ വിദേശ കാര്യ മന്ത്രി ജോർജ്ജ് അരീസ അറിയിച്ചു

വെനസ്വേലയുടെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് വിദേശകാരൃ മന്ത്രാലയ വക്താവ് അറിയിച്ചു ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതി കാര്യത്തിലാണ് ഇന്ത്യയുടെ പ്രഥമ പരിഗണന വെനസ്വേലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ക്രിയാത്മക ഇടപെടലുകൾക്ക് സന്നദ്ധമാണെന്നും വക്താവ് അറിയിച്ചു

യൂറോപ്യൻ യൂണിയൻ വിടുന്നതിന്റെ ഭാഗമായി പാർലമെന്റിൽ അവതരിപ്പിച്ച് പുതിയ പ്രമേയം പാർലമെന്റ് വോട്ടിങ്ങിൽ തള്ളി

കശ്യപ് രാഹുൽ യാദവിനെ കീഴ്പ്പെടുത്തി കാർട്ടർ ഫൈന്റ്ലിൽ ്കടന്നു സായി പ്രണീത് രോഹിത് യാദവിനെ തോൽപ്പിച്ചു ക്വാർട്ട്പിൽ സൌരഭ് വർമ്മയെ നേരിടും